പിണറായി വിജയനും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു

കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻഗഡ്കരി

പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു പദ്ധതിയും ഉപേക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി

പേർക്ക് രോഗം സ്ഥിരീകരിച്ചു

രോഗവ്യാപനം തടയാൻ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി

രജിസ്ട്രേഷൻ മറ്റന്നാൾ ആരംഭിക്കും

എസ്

ബംഗളൂരുവിനെ നേരിടും

മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കേന്ദ്ര സർക്കാർ എല്ലാ ്സഹായവും പിൻതുണയും നൽകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻഗഡ്കരി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ

ജനങ്ങൾക്ക് ഗുണമാകുന്ന ഒരു പുദ്ധതിയും ഉപേക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്ത് തന്നെ സമാനതകളില്ലാത്ത ഒരു പദ്ധതിയാണിത്

ആത്മാഭിമാനത്തോടെ ജീവിക്കാനൂള്ള സാഹചര്യമൊരുക്കലാണ് ലൈഫ് മിഷന്റെ ലക്ഷ്യം വാർഡു തലസ്ഥമിതീകൾ പുനരുജ്ജീവിപ്പിച്ച് കോവിഡ് പ്രതിരോധം ശക്തമാക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

നിലവിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം കേരളം ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

മന്ത്രി ജെ

കൊച്ചി കപ്പൽശാലയിലായിരുന്നു ചടങ്ങ്

പൊതുപരീക്ഷ ലക്ഷ്യമാക്കി രണ്ട് മുതൽ നാല് വരെ എപ്പിസോഡുകളുള്ള പത്ത് പ്ലസ്ടു ക്ലാസുകളുടെ റിവിഷൻ ക്ലാസുകൾ ഞായറാഴ്ച മുതൽ സംപ്രേഷണം ആരംഭിക്കുമെന്ന് കൈറ്റ് സി

അൻവർ സാദത്ത് അറിയിച്ചു

പൂർണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തിരുവന്തപുരം പാലക്കാട് കൊച്ചി തലശ്ശേരി എന്നിവിടങ്ങളിലാണ് മേള നടക്കുന്നത്

ഭക്ഷണം ഔദാര്യമല്ല അവകാശമാണ് എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനും ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമത്തിന്റെ പ്രാധാന്യം ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ പരിധിയിലുള്ള പദ്ധതികൾ എന്നിവ സംബന്ധിച്ച് തദ്ദേശ സ്വയം ഭരണ് സ്ഥാപന അധ്യക്ഷന്മാർക്ക് ക്ലാസുകൾ നൽകും

എല്ലിൽ ഇന്ന് ഹൈദരാബാദ് ബംഗളുരു എഫ്

കുഷ്ഠരോഗത്തിന്റെ ്യന്റ്ത്തേയുള്ള തിരിച്ചറിയലും രോഗത്തിന്റെ സാമൂഹ്യവ്യാപനം അവ്സാനിപ്പിക്കുന്നതിനും വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളതാണ് അശ്വമേന്നും പദ്ധതി രാഹുൽഗാന്ധി കാർഷിക ബില്ല് വന്നാൽ കർഷകരുടെ ചന്തകൾ ഇല്ലാതാകുമെന്നും കാർഷിക ഉൽപ്പന്നങ്ങളുടെ് വില നിയന്ത്രണം കമ്പനികൾ തീരുമാനിക്കുമെന്നും കോ്ൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി